മഹാരാഷ്ട്രയിൽ ബിജെപി ശിവസേന സഖ്യം ഭരണം നിലനിർത്തി

ജനങ്ങളുടെ ജനാധിപത്യത്തിന്മേലുള്ള വിശ്വാസമാണ് പ്രകടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ലോകം നേരിടുന്ന അടിസ്ഥാനപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ബുദ്ധ ദർശനങ്ങളെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൃാർ ചുഴലിക്കാറ്റായി ശക്തിപ്രാപിച്ചു മുംബെയിലും തീരദേശ ജില്ലകളിലും കനത്തമഴക്ക് സാധ്യത

സി

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഷ്ട്രൂഡ്നാവിസ് ശിവസേന നേതാവ് ആദിത്യ താക്കറെ പ്രതിപക്ഷ നേതാവ് ധനഞ്ജയ് മുണ്ടെ മുൻ മുഖ്യമന്ത്രിമാരായ അശോക് ചവാൻ പൃഥിരാജ് ചവാൻ മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാർ തുടങ്ങിയവർ വിജയിച്ചു ബിജെപി നേതൃത്വത്തിലുള്ള മഹാസഖൃത്തിന് വൃക്തമായ ഭൂരിപക്ഷം നൽകിയ ജനങ്ങൾക്ക് മുഖൃമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നന്ദി പറഞ്ഞു

സഖൃത്തിലെ ധാരണയനുസരിച്ച് അധികാരം പങ്കിടുമെന്നും അദ്ദേഹം വൃക്തമാക്കി

പ്രതിപക്ഷ പാർട്ടികളുമായി ശിവസേന സഖ്യമുണ്ടാക്കുമെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കവിത

തുടർന്ന് ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദയുമായും മറ്റുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തി

ഇതിൽ നാല് സ്വതന്ത്രരും ഹരിയാന ലോക്ഹിത് പാർട്ടിയിലെ ഒരു എം

രണ്ടാം സ്ഥാനം ബിജെപിയും നേടി

ജനങ്ങൾക്ക് ജനാധിപത്യത്തിന്മേലുള്ള വിശ്വാസവും താഴേതട്ടിൽ നിന്നുമുള്ള ഭരണത്തോടുള്ള ആഗ്രഹവുമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വൃക്തമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

ശ്രീനഗറിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ഡി സി ചെയർപേഴ്സന്മാരുമായി സംവദിക്കവെയാണ് അദ്ദേഹം ഇക്കാരൃം വൃക്തമാക്കിയത്

വർത്തമാനകാല സംഘർഷങ്ങൾക്ക് പരിഹാരമാണ് ബുദ്ധ ദർശനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു

ആത്മീയതയും ശാന്തിയും വികസനവും പരസ്പരപൂരകങ്ങളായിരിക്കുമ്പോൾ സംഘർഷങ്ങളും കലാപങ്ങളും വികസനമുരടിപ്പിന് കാരണമാകുന്നു ഭഗവാൻ ബുദ്ധനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള പരമ്പരാഗത വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നത് യുവാക്കളെ ബുദ്ധദർശനത്തിൽ ആകൃഷ്ടരാകാൻ സഹായിക്കുമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു

ഹർഷ് വർദ്ധൻ സംസ്ഥാന ഗവൺമെന്റിന് കത്തയച്ചു പൊതുജനാരോഗൃ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന ഗവൺമെന്റിനെയും മുഴുവൻ ടീമിനെയും അഭിനന്ദിക്കുന്നതായ്ടി കേന്ദ്രമന്ത്രി അറിയിച്ചു

ആരോഗൃ മേഖലയില്ലെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി യാൽ അടുത്ത വർഷം ഇതിലും ഉയർന്ന ആനുകൂല്യങ്ങൾ നേടാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

തിരുവനന്തപുരത്ത് ചേർന്ന കൊച്ചി നഗരസഭാ അധികൃതരു ടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി

ഇതിനോടനുബന്ധിച്ച് ഇന്ന് നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആയിരം വനിതാ ഗുണഭോക്താക്കൾക്ക് പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്തു ഉജ്ജ്വല യോജനയുടെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കിയത്

അമിത് ഷാ വ്യക്തമാക്കി

ഇന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതിർന്ന പൌരന്മാരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പാർട്ടിയെ പിന്തുണയ്ക്കും ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച് ഇതുവരെ ആരുമായും ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നും പാർട്ടിയുടെ ദേശീയ നിർവാഹണക സമിതി ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ആയുർവേദം ദീർഘായുസ്സിന് എന്ന പ്രമേയവുമായി ലഡാക്കിലെ ലേയിൽ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോവ റിഗ്പാ ആണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ പാരമ്പരൃ ചികിത്സാ സമ്പ്രദായമാണ് സോവ റിഗ്പാ ഈ ചികിത്സാ രീതിക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരം ഉണ്ട്

ധൻ ത്രയ്യോദ്ദശി ധന്വന്ത്രി ത്രയോദശി എന്നിങ്ങനെ അറിയപ്പെടുന്നു ആഘോഷം ദീപാവലിയുടെ രണ്ടു ദിവസം മുമ്പാണ് ഗൃഹോപകരണങ്ങൾ ആഭ്രണങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിന് ഇത് ശുഭദിനമായി കണക്കാക്കുന്നു

മീ

മുംബെയിലും കൊങ്കൺ പ്രദേശത്തും ശക്തമായ മഴക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്